എം ഭക്ഷണം പാഴാക്കരുതെന്നും ഉൌർജ്ജവും ജലവും സംരക്ഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡണ്ട് ഷി ജിൻ പിങ് അടുത്ത വെള്ളി ശനി ദിവസങ്ങളിൽ ഇന്ത്യാ സന്ദർശനത്തിനെത്തും കൂടത്തായി കൊലപാതകപരമ്പരയിൽ മുഖ്യപ്രതി ജോളിയടക്കം മൂന്നു പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും പാലാരിവട്ടം മേൽപ്പാലം അഴിമതിക്കേസിൽ പൊതുമരാമത്ത് മുൻസെക്രട്ടറി ടി ഒ സൂരജ് അടക്കം മൂന്നുപേരുടെ ജാമ്യാ പേക്ഷ ഹൈക്കോടതി തള്ളി ബാഡ്മിന്റൺ ലോകചാമ്പ്യൻ പി വി സിന്ധു ഉച്ചയ്ക്ക് ശേഷം കേരളത്തിന്റെ ആദരം ഏറ്റുവാങ്ങും ലോക വനിതാ ബോക്സിങ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജമുന ബോറയും കാർട്ടറിലെത്തി ഭക്ഷണം പാഴാക്കരുതെന്നും ഉൌർജ്ജവും ജലവും സംരക്ഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ദസറ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംസാരിക്കു കയായിരുന്നു അദ്ദേഹം

സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം അവരുടെ വൃക്തിത്വത്തെ മാനിക്കണ മെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ പെൺകുട്ടികൾ നാടിനും വീടിനും വെളിച്ചമായി മാറട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ നിരവധി ഉത്സവങ്ങളുടെ നാടാണെന്നും സമൂഹത്തെ ഒന്നിപ്പിക്കാൻ എല്ലാ ഉത്സവങ്ങളും കാരണമകുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ചെന്നൈ മാമല്ലപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഷി ജിൻ പിങ് രണ്ടാം അനൌപചാരിക ഉച്ചുകോടിയിൽ ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ചചെയ്യും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ അതിർത്തി പ്രശ്ന ങ്ങളും രാജ്യാന്തര വിഷയങ്ങളും ഇരുനേതാക്കളും ചർച്ചചെ യ്തേക്കുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ചൈനയിലെ വുഹാനിൽ നരേന്ദ്രമോദിയും ഷി ജിൻ പിങ്ങുമായി ആദ്യ അനൌപചാരിക ചർച്ച നടത്തിയിരു ന്നു

ഇന്നലെ ചൈന യിൽ പാക്കി സ്ഥാൻ പ്രധാ ന മന്ത്രി ഇമ്രാൻഖാനും സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബെജു വായും ചൈനീസ് പ്രസിഡണ്ടുമായി കൂടിക്കാഴ്ച നടത്തിയിരു ന്നു തൊട്ടടുത്ത ദിവസം തന്നെ ചൈനീസ് പ്രസിഡണ്ട് നടത്തുന്ന ഇന്ത്യാ സന്ദർശനം വളരെ പ്രാധാന്യത്തോടെയാണ് ലോകം നോക്കി കാണുന്നത്

നിയമനിർമ്മാണത്തിനുവേണ്ടിയാണ് സഭ ചേരുന്നതെന്നാണ് റിപ്പോർട്ട് തൃശൂർ പാവറട്ടിയിൽ യുവാവ് എക്സൈസ് കസ്റ്റഡി യിൽ മരിച്ച കേസിന്റെ അന്വേഷണം സി ബി

സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്ത ലത്തിലാണ് തീരുമാനം കസ്റ്റഡിമരണങ്ങൾ ഉണ്ടായാൽ അന്വേ ഷണം സി ബി ഐ യ്ക്ക് വിടണമെന്നാണ് കോടതി നിർദേശം കൂടത്തായി കൊലപാതകപരമ്പരയിൽ റിമാൻഡിൽ കഴിയുന്ന മുഖ്യ പ്രതി ജോളിയടക്കം മൂന്നു പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ കോടതി നാളെ പരിഗണിക്കും അറസ്റ്റിലായ മൂന്ന് പ്രതികളെയും നാളെ ഹാജരാക്കാൻ താമരശ്ശേരി കോടതി നിർദേശിച്ചു സയനൈഡ് എത്തിച്ച് നൽകിയ കേസിൽ റിമാൻഡ് ചെയ്ത മാത്യുവിന്റെ ജാമ്യപേക്ഷയുടെ പരിഗണനയും കോടതി നാളെത്തേക്ക് മാറ്റി അതേസമയം ഓരോ കൊലപാതകത്തിലും പ്രത്യേകം എഫ്

റൂറൽ എസ് പി കെ ജി സൈമണിന്റെ നേതൃത്വ ത്തിൽ കൂടുതൽ സേനാംഗങ്ങളെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കാനാണ് ഡി ജി

ജോളിയുടെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് റവന്യൂവകുപ്പ് പ്രാഥമിക പരിശോധന നടത്തിയതായി അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടത്തായി സംഭവത്തിൽ വ്യാജ ഒസ്യത്ത് കേസിൽ ഡെപ്യൂട്ടി തഹസിൽദാർ ജയശ്രീക്കെതിരെ പ്രാഥമിക അന്വേഷണം നടന്ന തായി കോഴിക്കോട് ജില്ലാ കലക്ടർ പറഞ്ഞു പൊലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നട ത്താൻ ജില്ലാകലക്ടർക്ക് റവന്യൂ മന്ത്രി നിർദേശം നൽകിയതായി റിപ്പോർട്ടുണ്ട് വീഴ്ചയുണ്ടെങ്കിൽ ഡെപ്യൂട്ടി തഹസിൽദാർക്കെ തിരെ നടപടി സ്വീകരിക്കാനും നിർദേശിച്ചിട്ടുണ്ട് പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണം അഴിമതിക്കേസിൽ റിമാന്റിൽ കഴിയുന്ന പൊതുമരാമത്ത് മുൻ സെക്രട്ടറി ടി

ഡി ബെന്നി പോളിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് മാണി സി കാപ്പൻ പാലാ എം

നിയമസഭാ ബാങ്കറ്റ് ഹാളിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സത്യവാചകം ചൊല്ലികൊടുത്തു തൃശൂർ പാവറട്ടി രഞ്ജിത്ത് കസ്റ്റഡി മരണക്കേസിൽ രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർകൂടി അറസ്റ്റിൽ എക്സൈസ് ഓഫീ സർമാരായ വി

യു മഹേഷ് എന്നിവരുടെ അറസ്റ്റാണ് ഇന്ന് രേഖപ്പെടുത്തിയത് കേസിൽ പ്രിവന്റീവ് ഓഫീ സർമാരായ രണ്ടുപേരടക്കം മൂന്നുപേരെ പൊലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു

എസ്

നവോത്ഥാന മൂല്യസംരക്ഷണ സമിതിയ്ക്ക് സ്ഥിരം സംഘട നാ സംവിധാനമുണ്ടാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരു മാനിച്ചു സമിതി ചെയർമാനായ വെള്ളപ്പള്ളി നടേശൻ തന്നെയാണ് പുതിയ പ്രസിഡണ്ട് ശരിദൂര നിലപാട് എൻ

എസ് പുനപരിശോധിക്കണമെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു

സമുദായത്തിലെ അംഗങ്ങൾ ആഗ്രഹിക്കുന്നതല്ല എൻ

എസിന്റെ നിലപാ ടെന്നും കോടിയേരി പറഞ്ഞു ജമ്മുകശ്മീരിൽ വിനോദ സഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയി രുന്ന വിലക്ക് നീക്കി നാളെ മുതൽ വിനോദസഞ്ചാരികൾക്ക് ഇവിടം സന്ദർശിക്കാം

കേരളത്തിന്റെ ആദരം ഏറ്റുവാങ്ങാൻ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻ പി വി സിന്ധു തിരുവനന്തപുരത്തെത്തി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ജിമ്മിജോർജ്ജ് ഇൻഡോർ സ്റ്റേഡിയം വരെ സിന്ധുവിനെ ഘോഷയാത്രയായി ആനയിച്ച ശേഷമാണ് ആദരി ക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്ത് ലക്ഷം രൂപയുടെ ചെക്കും ഉപഹാ രവും ചടങ്ങിൽ സിന്ധുവിന് സമ്മാനിക്കും കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഒളിമ്പിക് ഭവനും സിന്ധു സന്ദർശിക്കും ടോക്കിയോ ഒളിമ്പിക് സിന് വേണ്ടിയാണ് തന്റെ മുഴുവൻ ശ്രദ്ധയുമെന്ന് പി വി സിന്ധു പറഞ്ഞു സ്വർണം നേടാൻ കഠിന പ്രയത്നം നടത്തണമെന്നും മത്സരം കടുത്തായിരിക്കു മെന്നും അൽപ്പംമുമ്പ് സിന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു ലോക വനിതാ ബോക്സിങ് ചാമ്പ്യൻഷിപ്പ് ക്വാർട്ടർ ഫൈന ലിൽ ഇന്ത്യയുടെ മേരികോം നാളെ കൊളംബിയയുടെ വലൻസിയ വിക്ടോറിയയെ നേരിടും

ലോക അഞ്ചാം സീഡായ അൾജീരിയൻ താരത്തെയാണ് ജമുന അട്ടിമറിച്ചത് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ പൂനെ യിൽ തുടക്കമാകും മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്ത മാക്കാം വിശാഖപട്ടണത്ത് ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചി രുന്നു സംസ്ഥാനത്ത് നാളെ മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് തൃശൂർ തിരുവനന്തപുരം പത്തനംതി ട്ട ഇടുക്കി ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടു ണ്ട്

റോഡിന്റെ നിർമ്മാണ ജോലിക്കാരായ ടിപ്പർ ഡ്രൈവർ സേലം സ്വദേശി ഉദയകുമാർ എക്സ്കവേറ്ററിന്റെ ഓപ്പറേറ്റർ തമിഴ് സെൽവൻ എന്നിവരാണ് മരിച്ചത് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം തൃശൂർ ടൌൺഹാളിൽ വൈകിട്ട് ഗവൺമെന്റ് ചീഫ് വിപ്പ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും

ലൈബ്രറി കൌൺസിൽ പ്രസിദ്ധീകരിക്കുന്ന ലഘുലേഖ ചടങ്ങിൽ പ്രകാശനം ചെയ്യും സ്വകാര്യ ബസിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാ തിയിൽ കൊല്ലം കൊച്ചുവിള സ്വദേശി ജോയ് എന്നയാളെ കാടാമ്പുഴ പൊലീസ് അറസ്റ്റ് ചെയ്തു കാഞ്ഞങ്ങാട് സബ് രജിസ്ട്രാറാണ് ജോയ് തിരുവന്തപുരത്തു നിന്നും മംഗലാപുരത്തേക്ക് പോകുക യായിരുന്ന സ്വകാര്യ ബസിൽ കൊല്ലം സ്വദേശിയായ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി ജോയിയെ പിന്നീട് തിരൂർ കോടതിയിൽ ഹാജരാക്കി ഹജ്ജ് കമ്മറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് നാളെ ആരംഭിക്കും ഒൺലൈൻ വഴി മാത്രമാണ് അപേക്ഷ നൽകേണ്ടത്

പിറവം വലിയ പള്ളിയുടെ താക്കോൽ ഓർത്തഡോക്സ് വികാരി സ്കറിയ വട്ടേകട്ടിലിന് നൽകാൻ ഹൈക്കോടതി ഉത്തര വിട്ടു

അതേസമയം പള്ളിയുടെ യഥാർത്ഥ ഉടമസ്ഥർ ആരെന്ന് കണ്ടെത്താൻ കൂടുതൽ സമയം വേണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു

കേരളത്തിനനുകൂലമായ സത്യവാങ്മൂലം അന്ന് കോടതി യിൽ സമർപ്പിക്കണമെന്ന് കേന്ദ്രത്തിന് മുകളിൽ സമ്മർദ്ദം ശക്ത മാക്കാനാണ് സമരസമിതിയുടെ നീക്കം സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബ ലിനെ കേരളത്തിനായി വാദിക്കാൻ വയനാട് എംപി രാഹുൽ ഗാന്ധി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്

വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് വിദ്യാർത്ഥികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് എംഎസ്എം കോഴിക്കോട് ജില്ലാ കമ്മറ്റി സംഘടിപ്പിച്ച ഹയർ സെക്കന്ററി വിദ്യാർത്ഥി സമ്മേളനം അഭിപ്രായപ്പെട്ടു കെഎൻഎം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോ ഹുസൈൻ മടവൂർ സമ്മേ ളനം ഉദ്ഘാടനം ചെയ്തു